മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലെ പരസ്യ പ്രചാരണം ഇന്ന് വൈകീട്ട് ആറിന് അവസാനിക്കും

പതിവു കവല യോഗങ്ങളും പ്രചാരണ ജാഥകളും റാലികളും ഓൺലൈനിലേക്ക് മാറി

എന്നാൽ ഓരോ വോട്ടും നിർണ്ണായകമാകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വീറിനും വാശിക്കും ഒട്ടും കുറവില്ല വോട്ടർമാരെ സ്വാധീനിക്കാൻ ആവശ്യമായ എല്ലാ തന്ത്രങ്ങളും ആവനാഴിയിൽ ഒരുക്കിയാണ് പൂർണമായും മാറിയ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ പുറത്തെടുക്കുന്നത് ദേഴ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലെ പരസ്യ പ്രചരണം ഇന്ന് വൈകീട്ട് ആറിന് അവസാനിക്കും വിശദാംശങ്ങളുമായി ജഷിത കുമാരി വോയ്സ് ദേദ കോവിഡ് പശ്ചാത്തലത്തിൽ കൊട്ടിക്കലാശം നിർബന്ധമായി ഒഴിവാക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

പ്രചരണത്തിന്റെ ഭാഗമായ റോഡ് ഷോയ്ക്കും വാഹന റാലിക്കും പരമാവധി മൂന്ന് വാഹനങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും കമ്മീഷണർ പറഞ്ഞു മറ്റന്നാളാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ വിധി എഴുത്ത്

ഈ ജില്ലകളിൽ ഇന്ന് വൈകീട്ട് ആറിന് ശേഷം മദ്യ വിതരണമോ വിൽപനയോ നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി രും കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ വ്യാഴാഴ്ച രണ്ടാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും

നിലവിൽ സർട്ടിഫൈഡ് ലിസ്റ്റിലുള്ളവർക്ക് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ താമസ സ്ഥലത്ത് നേരിട്ടെത്തിയാണ് പ്രത്യേക തപാൽ ബാലറ്റ് നൽകുന്നത് ചില സ്ഥലങ്ങളിൽ വോട്ടർമാരെ നേരിട്ട് കണ്ടെത്തുന്നതിനും ബാലറ്റ് നൽകുന്നതിനും അസൌകര്യങ്ങൾ നേരിട്ടത് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി പ്രത്യേക ബാലറ്റിനായി സ്പെഷ്യൽ വോട്ടർമാർക്ക് നേരിട്ടും വരണാധികാരിക്ക് അപേക്ഷ നൽകാവുന്നതാണ് രും പ്രത്യേക തപാൽ ബാലറ്റ് പേപ്പർ നൽകുന്ന നടപടി ആശുപത്രികളിൽ തടസപ്പെടുത്തരുതെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ ഡോ

ചില ആശുപത്രികൾ പ്രത്യേക ബാലറ്റ് പേപ്പർ നൽകുന്നതിന് ഉദ്യോഗസ്ഥരെ പ്രവേശിപ്പിക്കുന്നില്ലെന്ന റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും ഇതു തെരഞ്ഞെടുപ്പ് നടപടികളുടെ ലംഘനമാണെന്നും കലക്ടർ പറഞ്ഞു രും പോളിങ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരിൽ കോവിഡ് രോഗ ലക്ഷണം ഉള്ളവർ മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്ന് കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

രും കോവിഡ് പശ്ചാത്തലത്തിൽ നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പൊതുജനാരോഗ്യം ഉറപ്പാക്കാൻ ഇത്തവണ ഓരോ പോളിങ് ബൂത്തുകളിലും പോളിങ് അസിസ്റ്റന്റുമാരുടെ സേവനം ഉറപ്പാക്കും

രംഭ പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച തറക്കല്ലിടും അടുത്ത നൂറു വർഷത്തെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ന്യൂഡൽഹിയിൽ അറിയിച്ചു

രംഭ ഭാരത് രത്ന ബി

രാഷ്ട്ര നിർമ്മാണത്തിന് ഡോ അംബേദ്കർ നൽകിയ സംഭാവനകൾ അനുസ്മരിച്ച് ഒട്ടേറെ പരിപാടികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് പാർലമെന്റ് സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ പ്രമുഖർ പുഷ്പാർച്ചന നടത്തും രും സമരം ചെയ്യുന്ന കർഷകരുമായി കേന്ദ്രഗവൺമെന്റ് ബുധനാഴ്ച വീണ്ടും ചർച്ച നടത്തും ആറാം തവണയാണ് കർഷക സംഘടനാ പ്രതിനിധികളുമായി പ്രശ്നപരിഹാരത്തിന് ചർച്ച നടത്തുന്നത് മിനിമം താങ്ങുവില തുടരുമെന്നും അതിന് ഭീഷണിയുണ്ടാവില്ലെന്നും ന്യൂഡൽഹിയിലെ വിജ്ഞാൻഭവനിൽ ഇന്നലെ നടന്ന അഞ്ചാം വട്ട ചർച്ചയിൽ കൃഷിമന്ത്രി നരേന്ദർസിംഗ് തോമർ കർഷക സംഘടനാ നേതാക്കൾക്ക് ആവർത്തിച്ച് ഉറപ്പുനൽകി ഇക്കാര്യത്തിൽ ഉയരുന്ന സംശയം അടിസ്ഥാന രഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു

രുമ എല്ലാവരും ഒരേ മനസോടെ കരുതലോടെ പ്രവർത്തിച്ച് കോവിഡെന്ന മഹാവിപത്തിനെ ഈ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റണമെന്ന് സംവിധായകനും നടനുമായ റഫി പറഞ്ഞു അതിനായി സാമൂഹിക അകലം പാലിക്കണമെന്ന് റഫി ആകാശവാണിയോട് പറഞ്ഞു

പത്തനംതിട്ട എറണാകുളം ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്നും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു

കടൽ ഇന്നും അതിപ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ പൂർണ നിരോധനം തുടരും രുര അതേസമയം മാന്നാർ കടലിടുക്കിൽ എത്തിയ തീവ്ര ന്യൂനമർദ്ദം രാമനാഥപുരത്തിന് സമീപം തുടരുകയാണ് തീവ്ര ന്യൂനമർദ്ദം നിലവിലുള്ളയിടത്ത് തന്നെ തുടരുകയും ശക്തി കുറഞ്ഞ് ന്യൂനമർദമായി മാറുകയും ചെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കണക്കാക്കുന്നത്

രംഭ ഐഎസ്എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എതിരില്ലാത്ത രണ്ടു ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചു ഇതോടെ നാലു മത്സരങ്ങളിൽ നിന്ന് എട്ട് പോയന്റ് നേടിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് രണ്ടാമതെത്തി

എല്ലിൽ ഇന്ന് രണ്ട് മത്സരങ്ങളുണ്ട്

സിയെയും രാത്രി ഏഴരയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവ എഫ് സിയെയും നേരിടും രംഭ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിക്ക് ഗോൾവാൾക്കറുടെ പേരിടാൻ നടത്തുന്ന നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി ഡോ ഹർഷവർധന് കത്തയച്ചു